ഇതനുസരിച്ച് മാത്രമേ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനാവൂ എന്നും ഇക്കാര്യം ആവർത്തിക്കേണ്ടതില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച പരാതികളിൽ ജില്ലാ കലക്ടർമാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു മുൻതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പെരുമാറ്റച്ചട്ടലംഘന പരാതികൾ കൂടുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സംസ്ഥാനത്ത് പ്രചാ രണം നടത്തിയപ്പോൾ ശബരിമല എന്ന വാക്ക് ഉപയോഗി ച്ചിട്ടില്ലെന്നും നേതാക്കൾ ഇത് മാതൃകയാക്കണമെന്നും ടിക്കാറാം മീണ പറഞ്ഞു

ഇക്കാര്യത്തിൽ കേരളത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്ക ണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കേരളത്തിൽ സ്ഥിതി ഭേദമാണെ ങ്കിലും അത് വഷളാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ടിക്കാറാം മീണ അഭിപ്രായപ്പെട്ടു

തെരഞ്ഞെടുപ്പു കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു വരുംദിവസങ്ങ ളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രചാരണ ത്തിന് ഉപയോഗിക്കുമെന്നും ശ്രീധരൻപിള്ള വൃക്തമാക്കി

തെരഞ്ഞെടുപ്പ് സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉച്ചകഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യും പീരങ്കി മൈതാനത്താണ് സമ്മേളനം ആഭ്യന്തര മന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കൊല്ലം നഗരത്തിൽ സുർക്ഷ ശക്തമാക്കി

എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി യിൽ പങ്കെടുക്കും സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അവർ സംസാരിക്കും

ശബരിമല പ്രചാ രണവിഷയമാക്കുന്നതിലൂടെ നേട്ടമുണ്ടാക്കാമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മുന്നണി കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു

ബംഗാളിലെ പല സി പി ഐ എം ഓഫീസുകളും ബി ജെ പി ഓഫീസുകളായത് നേരിൽ കാണാൻ സ്വന്തം ചെലവിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെ കൊണ്ടുപോകാമെന്ന് മുല്ലപ്പള്ളി കണ്ണൂർ ചേലേ രിയിൽ പറഞ്ഞു

തട്ടിക്കൊണ്ടുപോ കാനോ പ്രചാരണസ്ഥലത്ത് ആക്രമണം ഉണ്ടാക്കാനോ സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ഓരോ ഗൺമാൻമാരെ നൽകാൻ തീരുമാനിച്ചു വനാതിർത്തിയിൽ രാഷ്ട്രീയപാർട്ടികൾ പ്രചാരണം നടത്തുമ്പോൾ സുരക്ഷ നൽകാൻ പൊലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടു ണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ മസാല ബോണ്ട് ഇടപാടിനെപ്പറ്റി സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പ്രതി പക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ബോണ്ട് വിൽപനയിലെ രഹസ്യാത്മകത അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം പ്രതിപക്ഷത്തെ നാല് എം എൽ എമാരുടെ സംഘത്തെ ഇത് സംബന്ധിച്ച ഫയലുകൾ കാണി ക്കാനും ദുരൂഹത അവസാനിപ്പിക്കാനും ചെന്നിത്തല കൊച്ചി യിൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു

ശബരിമല് പ്രശ്നത്തിൽ ബി ജെ പി മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല ആരോ പിച്ചു

ഡി

വൈകിട്ട് ധർമ്മടം മണ്ഡലത്തിലെ പനയ ത്താംപറമ്പിലാണ് പരിപാടി

തെരഞ്ഞെടുപ്പിന് സുശക്തമായ സുരക്ഷാ ക്രമീകരണ ങ്ങളാണ് പൊലീസ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്

അമൃത്സറിലെ ജാലിയൻവാലാബാഗ് സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അടക്കം പ്രമുഖനേതാക്കൾ പുഷ്പാർച്ചന നടത്തി രാജ്യ വ്യാപകമായി ദിനാചരണപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്

ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു സൈനൃത്തിന്റെ തെരച്ചിൽ

ബാ ബുപോളിന്റെ മൃതദേഹം അല്പസമയത്തിനകം കവടിയാ റിലെ വസതിയിലേക്ക് കൊണ്ടുപോകും രാവിലെ തിരുവ നന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു സംസ്കാരം നാളെ വൈകീട്ട് പെരുമ്പാവൂർ കുറുപ്പംപടി യാക്കോബായ പള്ളി സെമിത്തേരിയിൽ നടത്തും

ഇടുക്കി ജില്ലയുടെ ആദ്യ കലക്ടറായിരുന്ന ഡാനിയൽ ബാബു പോൾ എന്ന ഡി

ധനകാര്യം വിദ്യാ ഭ്യാസം ടൂറിസം ഫിഷറീസ് ഗതാഗതം റവന്യൂ തുടങ്ങി ഒട്ടേറെ വകുപ്പുകളുടെ സെക്രട്ടറിയായിരുന്നു

ഡിയായും പ്രവർത്തി ച്ചു

കഥ ഇതു വരെ വേദായനം നിയമസഭാ ഫലിതങ്ങൾ പട്ടം മുതൽ ഉമ്മൻചാണ്ടി വരെ ഓർമ്മകൾക്ക് ശീർഷകമില്ല തുടങ്ങിയ വയാണ് മറ്റ് പ്രധാന പുസ്തകങ്ങൾ

ഒരേ സമയം ഔദ്യോഗിക തലത്തിലും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും വൃക്തി മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ അപൂർവ്വം ചിലരിൽ ഒരാളായിരുന്നു ഡോ

ഇടുക്കി ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമായതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ അക്ഷീണ പരിശ്രമമാണെന്നും ചെന്നിത്തല അനുശോചിച്ചു

സംസ്ഥാന വ്യാപകമായി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂരടക്കം ചിലയിടങ്ങളിൽ വളർത്തുമൃ ഗങ്ങൾ കൊടുംചൂടിൽ ചത്തായി റിപ്പോർട്ടുണ്ട്

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് നാലിന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി എട്ടിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിങ്സ് ഇലവൻ പഞ്ചാബിനെയും നേരിടും

നാലു മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

കേരളത്തിലെ ക്ഷീര കർഷകർ വെള്ളപ്പൊക്കത്തിന് ശേഷം പുല്ല് കിട്ടാതെയും കാലിത്തീറ്റ വില വർദ്ധനയും കാരണം വലിയ പ്രതിസന്ധിയിലാണ്

തമിഴ്നാട് പൊലീസുമായി സഹകരിച്ചു അതിർത്തി പ്രദേശങ്ങളായ ആനക്കട്ടി ചിന്നതടാകം ഭാഗങ്ങളിലും പരിശോധന നടത്തും ആനമൂളി ചെക്ക്പോസ്റ്റിൽ പ്രാഹനപരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്

വാഹനം പാർക്ക് ചെയ്യുന്നതി നെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ വ്യാഴാഴ്ചയാണ് ശ്രീകാരൃം സ്വദേശികകൾക്ക് നാലംഗസംഘത്തിന്റെ മർദ്ദന മേറ്റത്

എസ് നാരായണൻ ആവശ്യപ്പെട്ടു

കഞ്ചാവ് ശരീരത്തു വച്ചു കെട്ടി കടത്തിക്കൊണ്ടു വന്ന തൃശൂർ ചാവക്കാട് സ്വദേശി റഷീദിനെ കുമളി എക് സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി ഒരു കിലോ ഉണക്ക കഞ്ചാവാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത് ക്കകകകക ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വൻ കഞ്ചാവ് വേട്ട

വിഷുദിനമായ മറ്റ ന്നാൾ ഭക്തർക്ക് വിഷുക്കണിയും വിഷുക്കൈനീട്ടവും സന്നി ധാനത്തൊരുക്കും